സാക്ഷാത്കാരം ലക്ഷ്യമിട്ട് കേന്ദ്രം നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവാ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

പ്രഖ്യാപിച്ചു

എസ് ആർ

രാഷ്ട്രപിതാവ് മഹാത്മഗാന്ധിയുടെ ശുചിത്വ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം

വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടത്തിയ പ്രസംഗത്തിൽ ശുചിത്വം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പിന്നീട് പ്രധാനമന്ത്രി സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി നടന്ന ശ്രമദാനത്തോടനുബന്ധിച്ച് ഡൽഹി പനർഹഞ്ചിലെ ബാബാ സാഹേബ് അംബേദ്ക്കർ ഹയർസെക്കണ്ടറി സ്കൂൾ പരിസരം ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുത്തു

സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ ശ്രീനഗറിൽ അറിയിച്ചതാണ് ഇക്കാര്യം

അതിനിടെ പി ഡി പി ജമ്മു കാശ്മീരിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചു കോൺഗ്രസും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് എന്നാൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുകയും പി ഡി പിയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ നിലപാടിനെ അപലപിക്കുകയും ചെയ്തു

ഇസ്റോയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ബ്രിട്ടീഷ് കമ്പനിയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിക്ഷേപണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആരോഗ്യ വകുപ്പ് നൽകിയ ബോധവത്ക്കരണം മാധ്യമങ്ങളും ജനങ്ങളും ഏറ്റെടുത്തിന്റെ ഫലം കൂടിയാണ് പകർച്ചവൃാധികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ലോകമെമ്പാടും പ്രളയത്തിന് ശേഷമുണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ മരണ സംഖൃ വളരെ വലുതാവാറുണ്ട് എന്നാൽ കേരളത്തിൽ പ്രളയത്തിന് ശേഷമുണ്ടായ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ ആരോഗൃ വകുപ്പിന് കഴി ഞ്ഞു പ്രളയത്തിൽ കാവലാളായ മത്സൃതൊഴിലാളികൾ കേരളത്തിന് അഭിമാനമാണെന്നും തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ മന്ത്രി പറഞ്ഞു

പ്രവാസി ഭാരതീയർ രാജ്യത്തിന്റെ വികസനത്തിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നും ഇതിന്റെ പ്രാധാന്യം അനുദിനം വർദ്ധിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ നടത്തിയ ഒരു സംയുക്ത പ്രസ്താവനയിൽ വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജും യു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറഞ്ഞു

ഒരു ബോബ് സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉമർ എന്ന തീവ്രവാദിയിൽ നിന്നാണ് ബോബിനെക്കുറിച്ച് അറിവ് ലഭിച്ചത് ഇതേത്തുടർന്ന് കൊൽക്കത്തയിൽ നിന്ന് എൻ ഐ

സംഭവത്തെ തുടർന്ന് മഹാബോധി ക്ഷേത്രത്തിനു ചുറ്റുമുള്ള സുർക്ഷ ശക്തമാക്കി

നെയ്ത്തൂകാരുടെ നൈപുണ്യവികസനത്തിനായി നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു

നദ്ദ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ശുചിത്വ പരിപാടിയായ സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു പുതിയ ശുചിത്വ പരിപാടിയിൽ പക്ഷാചരണം സംഘടിപ്പിക്കുന്നതുവഴി ഈ കാലത്ത് ആരോഗൃമേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കേന്ദ്ര ആരോഗൃ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവിടങ്ങളിലെ ശുചിത്വ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യും ശുചിത്വ ആരോഗ്യ പരിപാലനങ്ങൾക്കായുള്ള കായകല്പ സംരംഭം പൊതുജനാരോഗൃം പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കസാഖിസ്ഥാന്റെ ഐഗെറിം കസ്സാനായേവയേയാണ് മേരികോം ഫൈനലിൽ പരാജയപ്പെടുത്തിയത്

കാറ്റിന്റെ വേഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്

ദൂരിതബ്രാധിത പ്രദേശങ്ങൾ അടുത്ത ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു

ഇതിന്റെ ആദ്യപടിയായി ജമ്മു സെക്ടറിൽ ആരംഭിച്ച പുതിയ നിരീക്ഷണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ നിർവ്വഹിക്കുമെന്ന് ശ്രീ ശർമ്മ വാർത്താലേഖകരോട് പറഞ്ഞു